ജാമ്യാപേക്ഷയുമായി മുൻ കേന്ദ്രമന്ത്രി പി

ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ

തുടക്കമായി ഇന്ത്യൻ സംഘത്തെ മേരി കോം നയിക്കുന്നു

പരിസ്ഥിതിയ്ക്ക് കടുത്ത ഭീഷണിയാണ് പ്ലാസ്റ്റിക്കെന്നും അതിനെ ഉന്മൂലം ചെയ്യാനുള്ള ലക്ഷ്യം കൈവരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു

ജലസംരക്ഷണ പ്രവർത്തനത്തിനുള്ള ജൽജീവൻ മിഷനിൽ മൂന്ന് ലക്ഷം കോടി രൂപ ച്ചെല്പിടാൻ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നതായി പ്രധാനമന്ത്രി വ്യക്തമാക്കി പ്രാദേശിക തലത്തിൽ ജലസ്ത്രോസുകൾ സംരക്ഷിക്കുന്നതിന് ജലം പുനരുപോയോഗം ചെയ്യുന്നതിനും ജനങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ലോകവേദിയിൽ ഇന്ത്യയുടെ സ്ഥാനം ഉയർത്തപ്പെടുകയാണെന്നും ഹൂസ്റ്റണിലെ ഹൌഡി മോഡി പരിപാടിയിൽ ഇത് ദൃശ്യമായെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി സബർമതി ആശ്രമത്തിൽ മഹാത്മഗാന്ധിക്ക് പ്രധാനമന്ത്രി സ്മരണാഞ്ജലി അർപ്പിച്ചു

ന്യൂഡൽഹിയിലെ ഇന്ത്യാഗേറ്റിൽ പര്യടൻ പർവ്വ് ടൂറിസം ഫെയർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം

വിവിധ കേന്ദ്രമന്ത്രിമാരുടെ സാന്നിധ്യത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത് ഷാ ട്രെയിൻ ഫ്ളാഗ് ഓഫ് ചെയ്തു വന്ദേ ഭാരത് എക്സ്പ്രസിലൂടെ ആത്മീയ വിനോദ സഞ്ചാരം ശക്തിപ്പെടുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്ര മോദി പറഞ്ഞു കൂടുതൽ വിവരങ്ങളുമായി ബിന്ദു വോയ്സ് ജമ്മുകാശ്മീരിന് നവരാത്രി ആഘോഷവേളയിൽ പുതിയ ട്രെയിൻ സമ്മാനിച്ചു റെയിൽവേയ്ക്ക് നന്ദി അറിയിക്കുന്നതായി കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത് ഷാ പറഞ്ഞു വേഗത്തിൽ മികച്ച സേവനം ഉറപ്പാക്കാനുള്ള റെയിൽവേയുടെ ശ്രമങ്ങൾ അഭിനന്ദനാർഹമാണെന്നും കേന്ദ്ര ആഭ്യന്തര മന്ത്രി പറഞ്ഞു ജമ്മുകാശ്മീരിലെ ടൂറിസ്പും പ്രികസനത്തിന് വന്ദേഭാരത് എക്സ്പ്രസ് മുതൽക്കൂട്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കേന്ദ്രമന്ത്രിമാരായ പീയുഷ് ഗോയ്ൽ ഹർഷവർദ്ധൻ ജിതേന്ദ്ര സിംഗ് റെയിൽവേയിലെ ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ന്യൂഡൽഹി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷ്നിൽ നടന്ന ഫ്ളാഗിംഗ് ഓഫ് പരിപാടിയിൽ ഓഗ്സ്റ്റ് പങ്കെടുത്തു

കട്ര മുതൽ ബനിഹാൽ വരെയുള്ള മേഖല റെയിൽവേയുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൽ അതിവേഗം പുരോമഗിക്കുകയാണ്

ന്യൂഡൽഹിക്കും കട്രയ്ക്കുമിടയിൽ മറ്റന്നാൾ മുതൽ വന്ദേഭാരത് എക്സ്പ്രസ് സാധാരണ സർവ്വീസുകൾ ആരംഭിക്കുമെന്ന് റെയിൽവേ അറിയിച്ചു വ്യാഴാഴ്ച ഒഴികെയുള്ള എല്ലാ ദിവസങ്ങളിലും ട്രെയിൻ സർവ്വീസ് നടത്തും

എക്സ് മീഡിയ അഴിമതി ക്കേസിൽ ജാമ്യം നിഷേധിച്ച ഡൽഹി ഹൈക്കോടതി നടപടിക്കെതിരെ മുൻ കേന്ദ്രമന്ത്രി പി

കേസിൽ സാക്ഷികളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഡൽഹി ഹൈക്കോടതി പി

ജാമ്യാപേക്ഷയിൽ അടിയന്തരമായി വാദം കേൾക്കണമെന്ന് പി

ഹർജിയിൽ ച്ചീഫ് ജസ്റ്റിസ് വാദം കേൾക്കുമെന്ന് ജസ്റ്റിസ് പി

പാകിസ്ഥാൻ തീവ്രവാദത്തെ ആളികത്തിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു അമേരിക്കൻ സന്ദർശനത്തിനിടെ വിദഗ്ധ സംഘ കൂട്ടായ്മയായ ദി ഹെറിറ്റേജ് ഫൌണ്ടേഷൻ വാഷിംഗ്ടണിൽ സംഘടിപ്പിച്ച പരിപാടിയെ അഭിസംബോധന ചെയ്യവെയാണ് കേന്ദ്രമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്

ജയ്ശങ്കർ കൂട്ടിച്ചേർത്തു

മൻയാരി പോസ്റ്റ്മേഖലയിൽ ഇന്നലെ രാത്രി ആരംഭിച്ച വെടിവെയ്പ്പ് ഇന്ന് അതിരാവിലെ വരെ തുടർന്നു ഇന്ത്യൻ സൈന്യം ശക്തമായി തിരിച്ചടിച്ചു

ഇരു രാജ്യൂങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം കൂടുതൽ ഊഷ്മളമാക്കുക ് എന്ന ലക്ഷ്യത്തോടെയാണ് സന്ദർശനം ലോക സാമ്പത്തീക ഫോറം ന്യൂഡൽഹിയിൽ സംഘടിപ്പിക്കുന്ന ഇന്ത്യ പ്രസാമ്പത്തിക സമ്മേളനത്തിൽ അവർ മുഖ്യാതിഥിയായി പങ്കെടുക്കൂർ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദുമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ബംഗ്ലാദേശ് പ്രധാനമന്ത്രി മറ്റന്നാൾ ചർച്ച നടത്തും വിവിധ കരാറുകളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവയ്ക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ചേർന്ന് മൂന്ന് ഉഭയകക്ഷി പദ്ധതികൾ ശ്രീമതി

വിശിഷ്ട സേവനം നടത്തിയ മുതിർന്ന പൌരന്മാർക്കും വയോജനങ്ങൾക്ക് വേണ്ടി അഭിനന്ദനാർഹമായ പ്രവർത്തനം കാഴ്ചവച്ച സ്ഥാപനങ്ങൾക്കും സേവനങ്ങൾക്കും പുരസ്കാരങ്ങൾ സമ്മാനിക്കും അന്താരാഷ്ട്ര വയോജന ദിനത്തോടനുബന്ധിച്ചാണ് കേന്ദ്ര സാമൂഹ്യനീതി മന്ത്രാലയം വയോശ്രേഷ്ഠ പുരസ്ക്കാരങ്ങൾ ഏർപ്പെടുത്തിയത്

അഞ്ചിടത്തും പ്രമുഖ മുന്നണികളുടെയെല്ലാം സ്ഥാനാർത്ഥികളുടെ പത്രിക അംഗീകരിച്ചിട്ടു് എല്ലായിടത്തും പ്രചാരണം രാം ഘട്ടത്തിലേക്ക് കടന്നു

പുൻപുൻ ഗംഗ സോൺ ബാഗ്മതി കോസി നദികൾ അപകടമേഖലയ്ക്ക് മുകളിലായാണ് ഒഴുകുന്നത് ഇതോടെ നദികൾക്ക് സമീപമുള്ള കൂടുതൽ പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി അടുത്ത രണ്ട് ദിവസങ്ങളിൽ പട്ന വൈശാലി ബഗുസ്വറായ് ഖഗാരിയ തുടങ്ങിയ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലവാസ്ഥാ വകുപ്പ് അറിയിച്ചു ഇവിടങ്ങളിലേക്ക് രക്ഷാപ്രവർത്തനത്തിനും പകർച്ചവ്യാധികൾ നേരിടാനുമായി കൂടുതൽ രക്ഷാപ്രവർത്തകരുടെ സംഘങ്ങളെ അയച്ചിട്ടുണ്ട്

ഇന്ത്യയിൽ നിന്ന് പത്തംഗ സംഘത്തെ എം സി

വിവിധ വിഭാഗങ്ങളിലായി ഇവർ മത്സരത്തിന് ഇറങ്ങും ആറുവട്ടം ലോക ചാമ്പ്യനായ എം

ഓപ്പണറായു രോഹിത് ശർമ്മയുടെ വിക്കറ്റാണ് നഷ്ടപ്പെട്ടത്

കരിയറിലെ ആദ്യ ടെസ്റ്റിൽ സെഞ്ചറി നേടി ്രപ്പുറ്താകാതെ നിൽക്കുന്ന മായങ്ക് അഗർവാളും ചേതേശ്വർ പൂജാർയുമാണ് ക്രീസിൽ